ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനഘട്ടത്തിലേക്ക് രാഷ്ട്രീയപാർട്ടികൾ നേതാക്കളുടെ മുൻനിര നേതൃത്വത്തിൽ പ്രചാരണം ഊർജ്ജിതമാക്കി

കാൻ ഫിലിംഫെസ്റ്റിവെലിന് ഫ്രാൻസിൽ തുടക്കം

ഐ

യുടെ അന്താരാഷ്ട്ര മാച്ച് റഫറി പാനലിലെ ആദ്യവനിതറഫറിയായി ഇന്ത്യയുടെ ജി

ബീഹാറിലെ ബക്സാറിലും സസറാമിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു കോൺഗ്രസും ആർ

ഡിയും അധികാരത്തിലെത്തിയാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യ ഇരുട്ടിലാകുമെന്നും ഇന്ത്യയെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ എൻ

എയ്ക്ക് സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സബ് കാ സാത്ത് സബ് കാ വികാസ് എന്നതാണ് എൻ

താൻ ജീവിച്ചതും പ്രവർത്തിച്ചതും രാജ്യത്തിനു വേണ്ടിയാണെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു ബിജെപി അദ്ധ്യക്ഷൻ അമിത്ഷാ കൊൽക്കത്തയിൽ നടന്ന റോഡ്ഷോയിൽ പങ്കെടുത്തു

നോട്ടു നിരോധവും ജി

ടിയും രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ തകർത്തെന്ന് ശ്രീ

പാവപ്പെട്ടവരെയും കർഷകരെയും യുവാക്കളെയും സ്ത്രീക്ക്കളിയും ന്യായ് പദ്ധതിയിലൂടെ ശക്തരാക്കുമെന്നും അദ്ദേഹം ഷ്ട്രഞ്ഞു

ന്യൂസ് ഡസ്ക് ആകാശവാണി

വാരണാസിയിലെ ജനത അവരുടെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തത് തന്റെ ഭാഗ്യമാണെന്നും നരേന്ദ്രമോദി ആപ്പിലൂടെ ജനങ്ങൾക്ക് നല്കിയ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷമായി വാരണസി വികസനത്തിന്റെ പാതയിലാണെന്നും ആരോഗ്യ നൈപുണ്യമേഖലയിൽ മറ്റുള്ളവർക്ക് മാതൃകയാണെന്നും ശ്രീ

ആരോപണം തെളിയിക്കുകയാണെങ്കിൽ താൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നും ശ്രീ സ്റ്റാലിൻ ചെന്നൈയിൽ പ്രസ്താവനയിൽ പറഞ്ഞു

രാഷ്ട്രീയ കൂട്ടുകെട്ട് ആരാഞ്ഞ് ഡി എം കെ തന്റെ പാർട്ടിയെ നേരത്തെ സമീപിച്ചിരുന്നു എന്ന് തമിഴ്നാട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഡോ

ന്യൂഡൽഹിയിൽ ലോകവ്യാപാര സംഘടനയുടെ വികസ്വര രാജ്യങ്ങളിലെ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴത്തിനേക്കാൾ മെച്ചമായ രീതിയിൽ ലോകവ്യാപാര സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ ഇന്ന് നടക്കുന്ന മന്ത്രിതല യോഗം സഹായകരമാകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു സുതാര്യത ബഹുമുഖ വാണിജ്യ രീതികൾ എന്നിവ ലോകവ്യാപര സംഘടനയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വികസ്വര രാജ്യങ്ങൾക്ക് നീതി ഉറപ്പാക്കാനായി ലോകവ്യാപാര സംഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഇളവുകളും നിയമങ്ങളും പരിപാലിക്കണമെന്നും ശ്രീ പ്രഭു അഭിപ്രായപ്പെട്ടു

എക്സിംബാങ്ക് മുഖേനയാണ് തുക മംഗോളിയക്ക് കൈമാറിയത്

ആറു ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായാണ് മാന്യമ പ്രവർത്തകർ ന്യൂഡൽഹിയിലെത്തിയത് മുതിർന്ന ഗവണ്മെന്റ് ഉദ്യോഗസ്ഥരുമായും ഇവർ സംവദിക്കും ഡൽഹിയിലെയും പൂനെയിലെയും സ്വകാര്യ സ്ഥാപനങ്ങളിലും സന്ദർശനം നടത്തും

പരസ്പര താല്പര്യമുള്ള ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇരുനേതാക്കളും ചർച്ച നടത്തി അഷ്ട്ഗാനിസ്ഥാൻ ഉൾപ്പെടെ ഉയർന്നു വരുന്ന പ്രാദേശിക സ്ഥിത്യിറ്റത്കളും ഇന്ത്യ ഇറാൻ ബന്ധം മെച്ചപ്പെടുത്തുന്നത് ആംബർഡിച്ചും ആശയവിനിമയം നടത്തി ദ്വിദിന സന്ദർശനത്തിനാറ്റി ശ്രീ

ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാരബന്ധം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ചും ഇരുവരും ചർച്ച ചെയ്തു ഇറാന്റെ കർമ്മപദ്ധതിയിൽ ഇന്ത്യയും പങ്കുചേരുമെന്നും പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ ചർച്ചകൾ നടത്തുമെന്നും ശ്രീമതി

ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനം കൈക്കൊള്ളുമെന്നും ശ്രീമതി

ഇ സംഘടനയ്ക്ക് മേലുള്ള നിരോധനം കേന്ദ്ര ഗവൺമെന്റ് അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടി

ടി ടി

ഇ ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് കനത്തൃഭ്ടീഷ്ണി ഉയർത്തുന്നതിനാലാണ് നിരോധനം ദീർഘിപ്പിക്കുന്നതെന്ന് വീജ്ഞാപനത്തിൽ പറയുന്നു

സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നല്കി ന്യൂസ്ലാന്റിൽ ക്രൈസ്റ്റ് ചർച്ച് പള്ളിയിലെ വെടിവെയ്പിനിരയായവരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇന്ത്യയിൽ നിന്നുള്ള കാൻ ഡെലിഗേറ്റും വാർത്താവിതരണ മന്ത്രാലയം സെക്രട്ടറിയുമായ അമിത് ഖാരെ ഇന്ത്യ പവലിയൻ നാളെ ഉദ്ഘാടനം ചെയ്യും ഭാഷ സംസ്കാര പ്രാദേശിക വൈവിദ്ധ്യമാർണ്ണ് ഇന്ത്യൻ സിനിമകൾ ഈ പവലിയനിൽ പ്രദർശിപ്പിക്കും

അന്താരാഷ്ട്ര മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതിന് അധികം വൈകാതെ ഇവർ കളത്തിലിറങ്ങും

എസ് സി അല്ലെങ്കിൽ സർവ്വകലാശാല പ്രവേശന പദ്ധതി വഴി അല്ലാതെ വരുന്ന എല്ലാ ബിരുദധാരികളേയും പെർമനന്റ് കമ്മീഷൻ ഷോർട്ട്സർവ്വീസ് കമ്മീഷൻ ഓഫീസേഴ്സ് ഉദ്യോഗാർത്ഥികളായി പരിഗണിക്കാൻ ഈ പരീക്ഷ പ്രയോജനപ്പെടുത്തും